ശബരിമലയിൽ വൻ ഭക്തജ്ജന്റ് തിർക്ക് തങ്ക അങ്കി ഘോഷയാത്ര നാളെ സന്ദ്രിധാ്നത്ത്

സംസ്ഥാനത്തെ ആദ്യ ഭൂഗർഭ ശ്മശാനത്തിന് മറ്റെന്നാൾ കോഴിക്കോട് ഉള്ളിയേരിയിൽ തറക്കല്ലിടും ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ മെൽബണിൽ തുടക്കം

ഈ പാലത്തിലൂടെയുള്ള ആദ്യ പാസഞ്ചർ ട്രെയിൻ സർവീസും പ്രധാനമന്ത്രി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് ധേമാജി ജില്ലയിലെ കാരംഗ് ചപ്പോരിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള പൊതു പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബ്ലോധന ചെയ്യും

ഇന്ത്യൻ റെയിൽവേയുളട്ട് നേതൃത്വത്തിലാണ് രണ്ടു തട്ടുകളായുള്ള പാലം നിർമ്മിച്ചിട്ടുള്ളത്

നിലയ്ക്കലിലും പമ്പയിലും തിരക്ക് നിയന്ത്രിച്ചാണ് തീർത്ഥാടകരെ കയറ്റി വിടുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ബിജി വർഗീസ്

ചമ്രവട്ടത്ത് പൊന്നാനി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ചമ്രവട്ടം റഗുലേറ്ററിന്റെ ചോർച്ച പരിഹരിച്ച് കൃഷിക്കാവശ്യമായ ജലം ലഭ്യമാക്കും പൊന്നാനിയിലെ മത്സൃത്തൊഴിലാളികൾക്കായി പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു

അസൂയാവഹമായ വികസന കുതിപ്പിനാണ് പൊന്നാനി സാക്ഷ്യംവഹിക്കുന്നതെന്ന് മന്ത്രി കെ ടി ജലീൽ അഭിപ്രായപ്പെട്ടു

സംസ്ഥാനം മറ്റുമേഖലകളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു

ബി എസ്

ഡെൽഹി ഹൈക്കോടതി വിധിയെ തുടർന്ന് വൊക്കേഷണൽ വിഷയങ്ങളിലുള്ള പരീക്ഷകളാണ് ആദ്യം നടത്തുക അക്കാദമിക് വിഷയങ്ങളിലെ പരീക്ഷകൾ മാർച്ചിൽ ആരംഭിക്കും ജൂണിലാണ് ഫലം പ്രഖ്യാപിക്കുന്നത്

തിരുപ്പിറവി ആഘോഷിച്ച് ആയിരങ്ങൾ പ്രാർത്ഥനാ നിർഭരമായി മനസുമായി പാതിരാ കുർബാനകളിൽ പങ്കാളികളായി തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയും പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോ

ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദരിദ്രരെ കരുതാനുള്ളൂ മനസ്സാണ് വേണ്ടതെന്ന് ഫ്രാൻസിസ് മാർപാപ്പ ക്രിസ്മ്സ് ് സന്ദേശത്തിൽ പറഞ്ഞു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

മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടുപാലങ്ങളും ഉദ്ഘാടനം ചെയ്യും

സംസ്ഥാന ഗവൺമെൻ്റാണ് പാലങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചത്

തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി

മധു ആകാശവാണിയോട്

വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിക്ക് തദ്ദേശസ്വയംഭരണ മന്ത്രി എ

മൊയ്തീൻ ശിലാസ്ഥാപനം നിർവ്വഹിക്കും

ബാലുശ്ശേരി മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തുകൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് ശ്മശാനം

പൊതുദർശനത്തിന് വയ്ക്കാനും ചിതാഭസ്മം സൂക്ഷിക്കാസൂച്ച് അനുസ്മരണ യോഗങ്ങൾ നടത്തുന്നതിനും സൌകര്യം ഉണ്ട്യാക്കും ഒരോ സമയം രണ്ട് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കൃഴിയുന്ന ഗ്യാസ് ക്രിമറ്റോറിയമാണ് സജ്ജീകരിക്കുന്നത്

അന്തിമ ഇലവനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓപ്പണർമാരായ ലോകേഷ് രാഹുലും മുരളി വിജയും പ്ലേയിംഗ് ഇലവനിൽ നിന്നും പുറത്തായി

മായങ്കിന്റെ അരങ്ങേറ്റ മത്സരം കൂടിയാകും മെൽബൺ ടെസ്റ്റ്

ബാലൻ അറിയിച്ചു